വിപാദ ഇസ്താ മിക പ്രഭാഷകൻ സാഖിർ നായിക്കിനെ വിട്ടു നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു

നിയുക്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം ഗവർണറുടെ സത്യപ്രതിജ്ഞ നാളെ

ഇന്ത്യ അമേരിക്ക തുടങ്ങി നിരവധി രാജൃങ്ങൾ ഇന്തോ പെസഫിക് മേഖലയിൽ ചൈനയുടെ സൈനിക നീക്കത്തിനെതിരെ നില്പാടെടുത്തിരുന്നു വിവാദ ഇസ്താമിക പ്രഭാഷകൻ സാഖിർ നായിക്കിനെ ഇന്തൃക്കു വിട്ടു നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേ ഷ്യൻ പ്രധാനമന്ത്രി മഹാതീർ മുഹമ്മദിനോട് ആവശൃപ്പെട്ടു റഷ്യ യിലെ വ്ളാഡിവോസ്തോക്കിൽ മല്ലേഷ്യൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാരൃം ഉന്നയി ച്ചത് പ്രശ്നത്തിൽ ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ ബന്ധപ്പെടാൻ തീരുമാനിച്ചതായി വിദേശ കാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ വ്ളാഡിമിർസ്തോക്കിൽ മാധ്യമപ്രവർത്തകരെ അറി യിച്ചു ജമ്മു കശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കിയതുമായി ബന്ധ പ്പെട്ട കാര്യങ്ങൾ മോദി മലേഷ്യൻ പ്രധാനമന്ത്രിയെ അറിയിച്ചു രണ്ടില ്ചിഹ്നം ആവശ്യപ്പെട്ട് ജോസ് കെ മാണി എഴുതിയ കത്ത് യു ഡി എഫിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു വെന്ന് മുതിർന്ന നേതാവ് പി ജെ ജോസഫ് കുറ്റപ്പെടുത്തി ചെയർമാൻ സ്ഥാനം കൈക്കലാക്കാൻ ജോസ് കെ മാണി നടത്തുന്ന ശ്രമ ത്തിന്റെ ഭാഗമാണ് ആ കത്തെന്ന് പി ജെ ജോസഫ് കോട്ടയത്ത് പറഞ്ഞു പാർട്ടി ചെയർമാനായി സ്വയം ചിത്രീകരിച്ച് തന്നെ വർക്കിംഗ് ചെയർമാനാക്കി കാണിച്ചാണ് ജോസ് കെ മാണി കത്തെഴുതിയ ത്

പാലാ ഉപതെരഞ്ഞെടുപ്പിൽ പത്രികകളുടെ സൂക്ഷ്മപരി ശോധന കഴിഞ്ഞാൽ ജോസഫ് കണ്ടത്തിൽ നാമനിർദേശം പിൻവലിക്കുമെന്നും പി ജെ ജോസഫ് പറഞ്ഞു എന്നാൽ യു ഡി എഫ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ജോസ ഫിന് കത്തയച്ചതെന്നും മുന്നണിയുടെ നിർദേശങ്ങൾ പാലിച്ചാ യിരുന്നു കത്തെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു് ചിഹ്നമല്ല പ്രധാന ചർച്ചാ വിഷയമെന്നും അദ്ദേഹം പറഞ്ഞു നിയുക്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രാവിലെ തിരുവ നന്തപുരം വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി

സ്വീകരണ ചടങ്ങിനു ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിലേക്ക് യാത്ര തിരിച്ചു നാളെ രാവിലെ പതിനൊന്നരയ്ക്കാണ് ഗവർണറുടെ സത്യപ്ര തിജ്ഞാ ചടങ്ങ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഓണക്കോടി നല്കാൻ ഗവ തീരുമാനിച്ചു

ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് കേരളാ വിദ്യാഭ്യാസ ചട്ടം പരിഷ്ക രിച്ച് ഓർഡിനൻസ് ഇറക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാ നിച്ചു

കശ്മീർ ടൈംസ് പത്രാധിപർ അനുരാധാ ഭാസിനടക്കം മാധ്യമ പ്രവർത്തകർ നൽകിയ ഹർജികളിലാണ് കോടതിയുടെ തീരുമാ നം

ജമ്മു കശ്മീരിൽ കരുതൽ തടങ്കലിൽ കഴിയുന്ന് രോഗബാധി തനായ സിപിഐഎം നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ ഡൽഹി എയിംസ് ആശുപത്രിയിലേക്ക് മാറ്റാൻ സുപ്രീംകോടതി നിർദേശിച്ചു അദ്ദേഹം ഇപ്പോൾ ശ്രീനഗറിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കോടതിയുടെ തീരുമാനം നടപ്പാ ക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സിപ്പിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോടതി ഉത്തരവിനോട് പ്രതികരിച്ചു

നേരത്തെ സീതാറാം യെച്ചൂരിക്ക് തരിഗാമിയെ നേരിൽ കാണാൻ അനുമതി നൽകിയതും ഇതേ ഡിവിഷൻ ബെഞ്ചായി രുന്നു ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുടെ മകൾക്ക് ശ്രീനഗറിലെത്തി അവരെ കാണാനും സുപ്രീംകോടതി അനുമതി നൽകി വീട്ടിലെത്തി അമ്മയെ കാണാൻ മകൾക്ക് അവ കാശമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഐ എൻ എക്സ് മീഡീയാ കേസിൽ ചിദംബരത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി

എക്കാലത്തേക്കും നിലനിർത്താൻ ഉദ്ദേശിച്ചല്ല കശ്മീ രിന് പ്രത്യേക പദവി നൽകിയതെന്നാണ് തന്റെ അറിവെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ പ്രത്യേക പദവി റദ്ദാക്കാനും അത് നടപ്പാക്കാനും സ്വീകരിച്ച നടപടി ഭരണഘടനയ്ക്ക് യോജിച്ച തര ത്തിലായിരുന്നില്ലെന്ന് ഡോ

അയോധൃയുടെ ചരിത്രം പരി ശോധിച്ചാൽ അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് കണ്ടെ ത്താനാവും ജനങ്ങൾക്കിടയിലെ ആഴമേറിയ വിശ്വാസം പരിഗ ണിക്കേണ്ടതാണെന്നും ഡോ തരൂർ നിലപാട് വിശദീകരിച്ചു യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികളായ നാലു പേർക്കെതിരെ ക്രൈംബ്രാഞ്ച് ലുക്ക്ഔട്ട് നോട്ടീസ് പുറ പ്പെടുവിച്ചു ദേശീയ പ്രസിഡണ്ട് ജാസ്മിൻ ഷാ അടക്കം ഭാരവാ ഹികൾക്കെതിരെയാണ് നടപടി സംഘടനയുടെ മൂന്ന് കോടി യിൽപ്പരം രൂപ തിരിമറി ചെയ്തുവെന്ന ആരോപണത്തിലാണ് ലുക്ക് ഔട്ട് നോട്ടീസ് ഷോബി ജോസഫ് നിധിൻ മോഹൻ ജിത്തു പി ഡി തുടങ്ങിയവരാണ് മറ്റു പ്രതികൾ യു എസ് ഓപ്പൺ ടെന്നീസിൽ മുൻ ചാമ്പ്യൻ റാഫേൽ നദാൽ സെമിയിൽ കടന്നു ക്വാർട്ടറിൽ നേരിട്ടുള്ള് സെറ്റുകളിൽ ഡിഗോ ഷാട്ട്സ്മാനെ തോൽപ്പിച്ചാണ് നദാലിന്റെ വിജയം കനത്ത മഴയെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റിയ ഇന്ത്യ ദക്ഷി ണാഫ്രിക്ക എ ടീമുകളുടെ നാലാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് പിച്ചിലെ നനവിനെ തുടർന്ന് കളി തുടങ്ങിയിട്ടില്ല

രാജൃത്തിന്റെ രണ്ടാമത്തെ രാഷ്ട്രപതിയും വിദ്യാഭ്യാസ വിചക്ഷണനും അധ്യാപകനും തത്വ ചിന്തകനുമായിരുന്ന ഡോക്ടർ സർവ്വെപള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപകദിനമായി ആചരിക്കുന്നത് ഇതോടനുബ ന്ധിച്ച് പൊതുയോഗങ്ങളും ചർച്ചാസമ്മേളനങ്ങളും ഉൾപ്പെടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

കവരത്തി ഗവ

ആഘോഷത്തിന്റെ ഭാഗ മായി മുതിർന്ന അധ്യാപകരെ ആദരിച്ചു

ആഗോള വിപണിയിലെ വിലവർദ്ധ നയും വിവാഹസീസണുമാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ സ്വർണവില കുതിച്ചുയരാൻ കാരണം പാലാരിവട്ടം പാലം അഴിമതി ്കേസിൽ മുൻപൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സൂരജ് അടക്കം പ്രതികളുടെ കസ്റ്റഡി കാലാ വധി ഇന്നവസാനിക്കും കസ്റ്റഡി കാലാവധി നീട്ടണമെന്ന വിജി ലൻസിന്റെ അപേക്ഷ മൂവാറ്റുപുഴ പ്രത്യേക വിജിലൻസ് കോടതി പരിഗണിക്കും

കോടതി ഇവരെ വെറുതെ വിട്ടു അപ്പീൽ സമർപ്പിക്കാതി രുന്ന രണ്ടാം പ്രതി കാരി സതീഷിന്റെ ശിക്ഷ തുടരും

ബന്ദിപ്പൂർ യാത്രാ നിരോധനം പിൻവലിക്കണമെന്നാവശൃപ്പെട്ട് ബത്തേരിയിൽ ഏകദിന ഉപവാസം ആരംഭിച്ചു സർവ്വകക്ഷി സംയുക്ത സമരസമിതിയാണ് ഉപവാസം സംഘടിപ്പിക്കുന്നത്

ഇതിന് മുന്നോടിയായി ഹരിത കേരളം മിഷന്റെയും കിലയുടെയും നേതൃത്വത്തിൽ ജില്ലയിൽ നടന്ന പരിശീലന പരിപാടികൾ പൂർത്തിയായി

കെ രാഘവൻ എം പി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു കണ്ണൂർ എയർപ്പോർട്ടിന് നൽകുന്ന അതേ പരിഗണന കോഴിക്കോട് വിമാനത്താവളത്തിന് നൽകണമെന്നും കരിപ്പൂരിന്റെ എക്കാലത്തെയും ആവശ്യങ്ങൾ വ്യോമ യാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാൻ ആവശ്യപ്പെടണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു

കെ രാഘവൻ എം പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും യു

സി ചെയർമാനും കത്തയച്ചു വടക്കൻ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് നിലവിലെ പരീക്ഷ എഴുതാൻ വളരെ ദൂരം യാത്ര ചെയ്യേണ്ട അവസ്ഥയാണെന്ന് അദ്ദേഹം കത്തിൽ അറിയിച്ചു

കണ്ണൂർ പ്രസ്ക്ലബ് ഏർപ്പെടുത്തിയ പാമ്പൻ മാധവൻ സമാരക പത്രപ്രവർത്തക അവാർഡ് മറ്റന്നാൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മാനിക്കും മാതൃഭൂമി കോഴിക്കോട് യൂനിറ്റിലെ സബ് എഡിറ്റർ അനു അബ്രഹാമിനാണ് പുര്സ്കാരം പരിയാരത്തെ കണ്ണൂർ ഗവ മെഡിക്കൽ കോളേജിൽ അനുവദിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ് ഘാടനം ടി

രാജേഷ് എം

നിർവഹിച്ചു

എൽ എ

ചടങ്ങിൽ ജില്ലാ കലക്ടർ ടി

സുഭാഷ് അധ്യക്ഷനായിരുന്നു പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മംഗലം ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി

വൃഷ്ടിപ്രദേശത്ത് കനത്തമഴ തുടരുന്ന സാഹചരൃത്തിലാണ് ഡാമുകളിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കുന്നത് അനുബന്ധ പുഴകളുടെയും വെള്ളിയാങ്കൽ റഗുലേറ്റർ പരിസരത്തും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു

ആവശ്യപ്പെട്ടു